ത്രിപുര വികസിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഉത്തരാഖണ്ഡ് മുഖ്യമൃത്തി ത്രിവേന്ദ്ര സിങ് റാവത്ത് ന് രാജിവച്ചു

എൽ ഫൈനലിൽ എ

ബഗാൻ മുംബൈ സിറ്റിയെ നേരിടും

ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൈത്രി സേതു ഇരുരാജൃങ്ങളേയും ബന്ധിപ്പിക്കുന്നതിനോടൊപ്പം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൌഹൃദം ദൃഢമാക്കുമെന്നും പ്രധാന മന്ത്രി വ്യക്തമാക്കി

ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി പങ്കാളിത്ത്തിന്റെ തിളക്കമാർന്ന ഉദാഹരണമാണ് മുംബൈ അഹമ്മദാബാദ്ദ് അതിവേഗ റെയിൽപാത എന്ന് പ്രധാന മന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി പാതയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഒരു ഗ്രന്ഥത്തിന് ഇത്രയും വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ മഹാത്മൃത്തെ സൂചിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

അമേരിക്കൻ പ്രസിഡന്റ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖരും ഉച്ചകോടിയിൽ സംബന്ധിക്കും

പ്പിന്നീട് അദ്ദേഹം ശ്രീപുരം വെല്ലൂരിലെ സുവർണ്ണ ക്ഷേത്രം സന്ദർശിക്കും നാളെ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും

പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായി ബിജെപി നിമസഭാ പാർട്ടി ഡെറാഡൂണിൽ കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിദ്ധ്യത്തിൽ ഇന്ന് യോഗം ചേരും

കാൽനൂറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മാന്ദ്യം നേരിട്ടത്

ഡി

സി

കോവിഡ് വാക്സിൻ പുറത്തിറക്കിയതി നാലും കൂടുതൽ ഉത്തേജക പ്രഖ്യാപനങ്ങൾ നടത്തിയതിനാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക സാധ്യതകൾ മെച്ചപ്പെട്ടു വരുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കണ്ണനെ അടിയന്തിരുമായി സസ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കൂമ്മീഷൻ ഉത്തരവായി പോലീസ് ഉദ്യോഗസ്ഥനെത്തിരെ നിയമ നടപടികൾ ആരംഭിക്കാൻ സംസ്ഥാന ചീഫ് സെക്രുട്ടവിക്ക് അയച്ച കത്തിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു

സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും വാക്സിൻ യജ്ഞത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ തുടർച്ചയായി വർദ്ധനവ് കണ്ടെത്തിയതിനെ തുടർന്ന് നിശാ ക്ലബുകളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടാൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

വിഷയത്തെച്ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്

ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ ബി അബ്ദുൾ നാസറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സെക്രട്ടറി സംതൃപ്തി പ്രകടിപ്പിച്ചു

എൽ ഫൈനലിൽ എ

ഇന്നലെ ഗോവയിൽ നടന്ന രണ്ടാം പാദ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ യാണ് മോഹൻ ബഗാൻ കീഴടക്കിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ടീമിന്റെ വിജയം